തടഞ്ഞുവെച്ച നാലുപേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചാമത് കേരള ചരിത്രകോൺഗ്രസ് കോട്ടയത്ത് തുടങ്ങി മൂന്നാമത് ഖേലോ ഇന്ത്യാ ഗെയിംസിന് നാളെ ഗ്വാഹട്ടി യിൽ തുടക്കമാകും വാർത്തകൾ വിശദമായി നിതി ആയോഗ് യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും സംരഭകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു കേന്ദ്ര മന്ത്രിമാരായ അമിത്ഷാ നിതിൻ ഗഡ്കരി നരേന്ദ്രതോമർ പിയൂഷ് ഗോയൽ തുടങ്ങിയവരും നിതിആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടു ക്കുന്നുണ്ട് സമ്പദ്രംഗത്തിന് ഊന്നൽ നൽകുന്ന യോഗം വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കാനാവശ്യമായ നടപടികളും ചർച്ച ചെയ്യു ന്നുണ്ട് തിങ്കളാഴ്ച രാജ്യത്തെ പ്രമുഖ വൃവസായികളുമായി സാമ്പത്തികമേഖല നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗ്ഗ ങ്ങളും പ്രധാനമന്ത്രി ചർച്ച ചെയ്തിരുന്നു കൂടുതൽ തൊഴി ലവസരങ്ങൾ സൃഷ്ടിക്കാനാവശൃമായ നടപടികളും പ്രധാ നമന്ത്രി ആരാഞ്ഞു

മാർച്ച് രണ്ട് മുതൽ ഏപ്രിൽ വരെയാണ് രണ്ടാംഘട്ട സമ്മേളനം

കേന്ദ്രം വൈരാഗൃബുദ്ധിയോടെ പെരുമാറുക യാണെന്നും അർഹമായ വിഹിതം പോലും സംസ്ഥാന ത്തിനു ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കിഫ്ബി യിൽ പുതിയ പദ്ധതികൾ ഇത്തവണ ഉൾപ്പെടുത്താനാവി ല്ലെന്നും ഡോ തോമസ് ഐസക് സ്വകാര്യചാനലിനോട് പറഞ്ഞു

ഇന്നലെ ബംഗാരം ദ്വീപിലാണ് രാഷ്ട്രപതിയും കുടുംബവും മുഴുവൻ സമയവും ചെലവഴിച്ചത് രാത്രി ലക്ഷ ദ്വീപ് കലാ അക്കാദമി ദ്വീപിന്റെ തനത് കലാരൂപങ്ങൾ രാഷ്ട്ര പതിക്കു മുന്നിൽ അവതരിപ്പിച്ചു മൂന്ന് ദിവ സത്തെ സന്ദർശ നിത്തിനിട്ടിയിൽ ബുധനാഴ്ച കവരത്തിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് രാഷ്ട്രപതി തറക്കല്ലിട്ടു വരുന്ന ഡിസംബറോടെ സംസ്ഥാനത്തെ എല്ലാ റോഡു കളും നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ അറിയിച്ചു

ദേശീയ ജല പാതാ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും കോവ ളത്തു നിന്ന് ബേക്കൽ വരെ ഈ വർഷം അവസാനത്തോടെ ബോട്ടിൽ സഞ്ചരിക്കാനാകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു

ഇതിൽ പങ്കാളികളാകാൻ ഒട്ടേറെ സ്ഥകാ ര്യസ്ഥാപനങ്ങൾ മുന്നോട്ടു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറ ഞ്ഞു

ഇതിന് സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് പത്ത് വർഷം കൊണ്ട് കേരളത്തിലെ തൊഴിലില്ലായ്മ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം

വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതി നകം തന്നെ അടിസ്ഥാന വികസന രംഗത്ത് വലിയ നേട്ടം കൈവരിച്ചിട്ടുണ്ട് മന്ത്രി ഇ പി ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു എം എ യൂസഫലി രവിപിള്ള എന്നിവരടക്കം പ്രമുഖ വൃവ സായികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു

കൈനകരി സ്വദേശികളായ അജി സുധീർ സാബു ജോളി എന്നിവരാണ് അറസ്റ്റിലായത്

ഗവൺമെന്റിന്റെ അതിഥിയായി എത്തിയ മൈക്കൽ ലെവിറ്റിനെ തടഞ്ഞത് സമൂഹ്യ വിരുദ്ധരാണെന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദഹം പറഞ്ഞു സംഭവത്തിൽ മന്ത്രി ഖേദം പ്രകടിപ്പിച്ചു

വിവാദങ്ങളിൽ താൽപര്യമില്ലെന്നും കേരളം മനോഹര മെന്നും ലെവിറ്റ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു

ചെന്നൈയിൽ നി ന്നെത്തിയ എൻ ഐ ടി വിദഗ്ധസംഘം സമീപത്തെ വീടു കളുടെ സുരക്ഷ വിലയിരുത്തി വരികയാണ്

സമീപവാസികളെ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനും നട പടികൾ ആരംഭിച്ചു

ഫ്രാൻസിലെ വി എസ് എൽ സർവകലാശാലയിലെ പ്രെഫ കപിൽ രാജ് ഉദ്ഘാടനം നിർവഹിച്ചു

നാളെ പശ്ചിമഘട്ടത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും പ്രളയചരിത്രവും സംബന്ധിച്ചും പൌരത്വവും മതേതരത്വവും സംബന്ധിച്ചും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും

പ്രസി ലുണ്ടായിരുന്ന ഒരാൾ മരിച്ചതായി അധികൃതർ അറിയിച്ചു ബാഗ്ദാദിൽ അമേരിക്കൻ എംബസി അടക്കം നയതന്ത്ര കേന്ദ്രങ്ങൾ സ്ഥിതിചെയ്യുന്ന മേഖലയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ രണ്ട് സ്ഫോടനങ്ങളുണ്ടായ തായി റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്കൻ പ്രസിഡണ്ട് ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് സംഭവമുണ്ടായത്

അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനാ വാൾ കേന്ദ്രയുവജന കാര്യ സ്പോർട്സ് മന്ത്രി കിരൺ റിജ്ജു ്തുടങ്ങിയവർ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും

ഐ ലീഗ് ഫുട്ബോളിൽ വൈകീട്ട് ഏഴിന് കോഴിക്കോട്ടെ മൂന്നാമത്തെ ഹോം മത്സരത്തിൽ ഗോകുലം കേരള എഫ് സി നിലവിൽ ചാംപ്യൻമാരായ ചെന്നൈ സിറ്റി എഫ് സിയെ നേരിടും പോയിന്റ് പട്ടികയിൽ ഗോകുലത്തിന് പിന്നിലാണ് ചെന്നൈ സിറ്റി എഫ്സിയുടെ സ്ഥാനം ഇന്ന് മറ്റു മത്സരങ്ങളിൽ കൊൽക്കത്തയിൽ മോഹൻ ബഗാൻ ഇന്ത്യൻ ആരോസിനെ നേരിടും ഐസ്വാളിൽ ഐസ്വാൾ എഫ് സി ഗോവ ചർച്ചിൽ ബ്രദേഴ്സിനോട് ഏറ്റുമുട്ടും

ഗോഹട്ടിയിൽ കളി മഴമൂലം മുടങ്ങിയപ്പോൾ ഇൻഡോ റിൽ ജയം ഇന്ത്യക്കായിരുന്നു

കോഴിക്കോട് കോർപ്പറേഷനിലെ ലൈഫ് പി എം എ വൈ പദ്ധതിയിൽ വീട് നിർമാണം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഒന്നരലക്ഷം വീടുകളുടെ നീർമാണം ഇതിനകം പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു ഭൂരഹിതരും ഭവനരഹിതരുമായ കുടുംബങ്ങൾക്കായി ഭവന സമുച്ചയങ്ങളുടെ നർമാണവും പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു

ഇതിൽ ആയിരം പേർ നിർമാണം പൂർത്തീകരിച്ചു കുടുംബസംഗമത്തോട് അനുബന്ധിച്ച് ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളുടെ കൌണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട്

യുവതീ പ്രവേശനത്തിന് പുറമെ അടിസ്ഥാന സൌകര്യ വിക സനം സംഘർഷങ്ങളില്ലാത്ത തീർത്ഥാടനം തുടങ്ങിയ കാര്യ ങ്ങളും പരിഗണിക്കും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേവസം ബോർഡിന് തീരു മാന മെടു ക്കാ മെന്നും ഗവൺമെന്റ് ദേവസ്ഥം ബോർഡിന്റെ അധികാരത്തിൽ ഇട പെടില്ലെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു

ഹിന്ദുമത പണ്ഡിതസഭയായിരിക്കും കാര്യങ്ങൾ തീരുമാ നിക്കുക എന്നും മന്ത്രി അറിയിച്ചു കേരളബാങ്കിൽ ലയിക്കാതെ നിൽക്കുന്ന മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ ബലമായി ലയിപ്പിക്കുന്ന ഓർഡി നൻസിൽ ഒപ്പിടരുതെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കത്ത് നൽകി

നിരോധിത ന്യൂജെൻ മയക്കുമരുന്നായ എംഡിഎംഎ യുമായി വയനാട് മുത്തങ്ങ എസൈസ് ചെക്ക് പോസ്റ്റിൽ രണ്ട് യുവാക്കൾ പിടിയിലായി

എ പിടികൂടിയത്

ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡി എം ഒ മാധ്യമങ്ങളോട് പറഞ്ഞു കാറ്റഗറി എയിൽ പെട്ട പനിയാണ് റിപ്പോർട്ട് ചെയ്തത് ഗ്രാമപഞ്ചായത്തിലെ അങ്കൺവാടി

കൾക്കും സ്കൂളുകൾക്കും തിങ്കളാഴ്ചവരെ അവധി പ്രഖ്യാപിച്ചു എച്ച് വൺ എൻ വൺ പനി സ്ഥിരീകരിച്ച കോഴിക്കോട് ജില്ലയിലേക്ക് ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സംഘം ഇന്ന് എത്തും

സമീപത്തുനിന്ന് ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങ ളിൽ നിന്ന് പ്രതികളെ തിരിച്ചറിയാൻ പൊലീസ് ശ്രമം തുട രുകയാണ് തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി കേര ള തമിഴ്നാട് ഡി ജി പിമാർ സ്ഥിതി അവലോകനം ചെയ്തു കേരള തമിഴ്നാട് അതിർത്തിയിൽ കളിയിക്കാവിള ചെക്പോസ്റ്റിനടുത്ത് ഇന്നലെ രാത്രി എസ് യുവി വാഹന ത്തിലെത്തിയ അക്രമികളാണ് വിൽസനു നേരെ നിറയൊഴി ച്ചത്